രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുന്നതിന് മുന്നോടിയായാണ് നടപടി

നിക്ഷേപം നടത്താൻ ഇന്ത്യയേക്കാൾ മിക്ടച്ച രാജ്യം വേറെയില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ ്സീതാരാമൻ

ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭ്രൊഗമായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഫിലിപൈൻസിലെത്തി

മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ

ഡെന്മാർക്ക് ഓപ്പണിൽ നിന്നും ഇന്ത്യയുടെ പി

സിന്ധു പുറത്തായി

ഗവൺമെന്റ് സെക്രട്ടറി ഫറൂഖ് അഹമ്മദാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയത്

ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് കാര്യാലയം ലേയിലേയ്ക്ക് മാറ്റിയത്

ലഡാക്കിനെ കേന്ദ്രഭരണ് പ്രദേശമായി മാറ്റുന്നതിനു്ളള ഭരണപരമായ മേൽനോട്ട ചുമതല് അദ്ദേഹത്തിന് നൽകി

നിക്ഷേപകരെ ബഹുമാനിക്കുന്ന ഒരു ജനാധിപത്യ അന്തരീക്ഷമാണ് ഇന്ത്യയിലുള്ളതെന്ന് ധനമന്ത്രി പറഞ്ഞു

എം എഫ് ആസ്ഥാനത്ത് ഇന്ത്യ യു എസ് നയതന്ത്ര പങ്കാളിത്ത ഫോറവുമായി സഹകരിച്ച് എഫ്

ഐ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി സീതാരാമൻ അതിവേഗം വളരുന്ന സമ്പദ്ഘടനയാണ് ഇന്ത്യയുടേത്

അഞ്ച് ദിവസം നീളുന്ന സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ അദ്ദേഹം ജപ്പാനിലും എത്തും വിശദാംശങ്ങളുമായി നരേന്ദ്ര മോഹൻ

ഇരു രാജ്യങ്ങളും തമ്മിലുളള ഉഭയകക്ഷി ബ്ന്ധം ശക്തമാക്കുകയാണ് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യം

ഇന്തോ ഫിലിപൈൻ ബിസിനസ് കോൺക്ലേവിനെയും നാലാമത് ആസിയാൻ ഇന്ത്യ വ്യാപാര സമ്മേളനത്തെയും ശ്രീ രാംനാഥ് കോവിന്ദ് അഭിസംബോധന ചെയ്യും മനിലയിലെ മരിയൻ കോളേജിലെ സമാധാന പഠന വകുപ്പിൽ നിർമ്മിച്ച മഹാത്മാ ഗാന്ധിയുടെ പ്രതിമ രാഷ്ട്രപതി അനാഛാദനം ചെയ്യും

ജപ്പാൻ ചക്രവർത്തി നരുഹിതോയുടെ കിരീടധാരണ ചടങ്ങിൽ പങ്കെടുക്കുന്ന ശ്രീ രാംനാഥ് കോവിന്ദ് ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബേയുമായും കൂടിക്കാഴ്ച നടത്തും ന്യൂസ് ഡെസ്ക് ആകാശവാണി

എക്സ് മീഡിയ അഴിമതി കേസിൽ മുൻ കേന്ദ്രധനകാര്യമന്ത്രി പി

പ്രത്യേക ജഡ്ജി അജയ്കുമാർ കുഹാറാണ് ചിദംബരത്തെ ചോദ്യം ചെയ്യുന്നതിനായി ദിവസത്തേയ്ക്ക് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ വിട്ടത്

എ ഇ യിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ യോഗ്യത സംബന്ധിച്ച പുതിയ ചട്ടങ്ങൾ ന്റില്പിൽ ജോലി ചെയ്യുന്നവരെ ബാധിക്കാതിരിക്കാൻ വേണ്ട നടപടിക്കൾ സ്വീകരിക്കാൻ യു

ഗവൺമെന്റിനോട് ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ ആവശ്യമായി ർഖകൾ യു എ ഇ

എ

യിൽ ജോലി ചെയ്യാൻ ന്ദ്ധ്യിംഗ് ബിരുദം നിർബന്ധമാക്കിയത് ഡിപ്ലോമ അടക്കമുള്ള കോഴ്സുകൾ പഠിച്ച് ജോലിക്ക് കയറിയ നിരവധി മലയാളികളടക്കമുള്ള നഴ്സുമാരുടെ തൊഴിൽ നഷ്ടമാക്കുമെന്ന വിഷയത്തിലാണ് വിദേശകാര്യ സഹമന്ത്രിയുടെ പ്രതികരണം

പ്രധാന ദേശീയ നേതാക്കളെല്ലാം പ്രചാരണത്തിൽ സജീവമായി

മഹാരാഷ്ട്രയിലെ പാർലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ

ജനങ്ങളും ബി ജെ പിയും തമ്മിലുളള ബന്ധം ഒരിക്കലും തകർക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു

കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജ്യോതിരാദിത്യ സിന്ധ്യ മറാത്തുവാഡ മേഖലയിലെ ഭോക്കറിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു

ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ പാഴ് വാഗ്ദാനങ്ങൾ നൽകിയാണ് ബി ജെ പി വോട്ട് തേടുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി

ന്യൂസ്ഡെസ്ക് ആകാശവാണി

പി യും ജെ

യു വും ഒരുമിച്ചുനിന്ന് മത്സരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ദേശീയതലത്തിൽ ഇരു പാർട്ടികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ്പ്രവർത്തിക്കുന്നതുപോലെ സംസ്ഥാനത്തും മുഖ്യമന്ത്രി നിതീഷ്കുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുമെന്ന് ശ്രീ അമിത് ഷാ ഒരു ടി വി ചാനലിനു നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു

കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ ഇരുവരെയും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥും ചേർന്ന് സ്വീകരിച്ചു പരസ്പര സഹകരണത്തിന്റെ പാതയിലൂടെയുള്ള നെതർലാൻഡ്സിൻറെയും ഇന്ത്യയുടെയും പ്രയാണം അനുസ്യൂതം തുടരുമെന്ന് നെതർലാൻഡ്സ് രാജാവ് വില്യം അലക്സാണ്ടർ പറഞ്ഞു

ഒറ്റ ഇരട്ട സംഖ്യകളിലെ വാഹനങ്ങൾ ഒന്നിടവിട്ടുളള ദിവസങ്ങളിൽ നിരത്തിൽ ഇറക്കുന്ന തരത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇരുചക്ര വാഹനങ്ങൾ ആംബുലൻസുകൾ സ്ത്രീകൾ ്ഡ്രൈവ് ചെയ്യുന്ന വാഹനങ്ങൾ സ്കൂൾ കുട്ടികൾ യാത്രചെയ്യുന്ന വാഹനങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണം ബാധകമല്ല ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്

വരും മാസങ്ങളിൽ കൊച്ചിയിലേയ്ക്കും ജാഫ്നയിൽ നിന്ന് സർവ്വീസ് ആരംഭിക്കും

സമുദ്ര മേഖലയിലെ ഇന്ത്യ യു

സിന്ധു പുറത്ത്